വാദം പൊളിഞ്ഞതായി പ്രതിപക്ഷ നേതാവ് കോവിഡ് രോഗികളുടെ ഫോൺ രേഖകൾ ശേഖരിക്കുന്നതിനെതിരെ രമേശ്ചെന്നിത്തല സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി

ഓണക്കിറ്റിലെ ശർക്കരയിലെ തൂക്കകൂറവ് പരിഹരിക്കാൻ റീപാക്കിംഗ് നടത്തുമെന്ന് മന്ത്രി പി

പത്തനംതിട്ട ചിറ്റാറിൽ വനപാലകർ കസ്റ്റഡിയിലെടുത്ത പി

മത്തായിയുടെ മരണം സംബന്ധിച്ച അന്വേഷണം സിബിഐക്ക് വിട്ടു

യൂണിടാക്കും സർക്കാരുമായുള്ള ബന്ധം തെളിഞ്ഞതായും ശ്രീ രമേശ്ചെന്നിത്തല തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തതിൽ പറഞ്ഞു കോഴക്കണക്ക് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവാണെന്നും ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തിയത് ധനമന്ത്രി തോമസ് ഐസക് ആണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു

ഏറ്റവും കുറവ് രോഗികൾ ഇടുക്കി ജില്ലയിലാണ്

രോഗികളുടെ ടവർ ലൊക്കേഷൻ മാത്രമേ എടുക്കുകയുള്ളൂ എന്ന സർക്കാർ നിലപാട് അംഗീകരിച്ചാണ് ക്ടോട്ടതി നടപടി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വീഴ്ച കൂടാതെ നടത്തേണ്ടതുണ്ടെന്നും ഡിവിഷൻ ബഞ്ച് വിലയിരുത്തി

സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് മത്തായിയുടെ ഭാര്യ ഹൈക്കോടതി നല്കിയ ഹർജിയിലാണ് നടപടി അന്വേഷണം സിബിഐക്ക് വിടുന്നതിൽ എതിർപ്പില്ലെന്ന് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി

സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് വനപാലകരെ സസ്പെന്റ് ചെയ്തിട്ടുണ്ട്

എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോടതി നടപടി